ദൂർബല വിഭാഗങ്ങളൂടെ ശബ്ദമായി പ്രവർത്തിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ സുപ്രധാന പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേന്ദ്രം സാധ്യമായ എല്ലാ സഹായങ്ങളും നല്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്

ത്രിച്ചിയിൽ നിന്നും ദുബായിലേക്ക് പറന്നുയർന്ന എയർഇന്ത്യ വിമാനത്തിന്റെ ചക്രം സുരക്ഷാ ഭിത്തിയിൽ ഉരസിയതു സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിന് വ്യോമയാനമന്ത്രി ഉത്തരവിട്ടു

ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

മനൂഷ്യാവകാശ സംരക്ഷണത്തിനായി ഒട്ടേറെ ചൂവടുവയ്പാണ് കമ്മീഷൻ നടത്തിയത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തുന്നതിനായി കഴിഞ്ഞ നാലു വർഷമായി ഗൌരവതരമായ പ്രയത്നങ്ങളാണ് കമ്മീഷൻ നടത്തിയത്

എന്നാൽ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ പുനസ്ഥാപിക്കുന്നതിനു വേണ്ടി കഠിന പ്രയത്നം നടത്തി എല്ലാവർക്കുമൊപ്പം ഏവരുടെയും വികസനം എന്നതാണ് ഗവണ്മെന്റിന്റെ ലക്ഷ്യം

സ്വതന്ത്ര ചുമതലയുള്ള വാർത്താവിനിമയ സഹമന്ത്രി മനോജ് സിൻഹ കമ്മീഷൻ അദ്ധ്യക്ഷൻ എച്ച്

രജതജൂബിലി സ്മാരകമായി പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പും കവറും പ്രധാനമന്ത്രി പുറത്തിറക്കി കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഭരണനിർവ്വഹണം എങ്ങനെ നടക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു പൊതുപണത്തിന്റെ വിനിയോഗം എപ്രകാരമെന്നും സേവനം എത്രത്തോളം ലഭ്യമാകുന്നു എന്നും അറിയുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള പരസ്പര വിശ്വാസവും സാമൂഹിക ഉടമ്പടിയും സുദൃഡമാക്കുന്നതിൽ വിവരാവകാശ നിയമം നിർണ്ണായക പങ്കാണ് വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു നിലവിലെ മുഖ്യ വിവരാവകാശ്ശ ി ക്മ്മീഷണർമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പ്രവിവരാവകാശ പ്രവർത്തകർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പ്പങ്കെടുക്കുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷിൻസോ ആബെയും തമ്മിലുള്ള അഞ്ചാമത് വാർഷിക ഉച്ചകോടിയാണിത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ആഗോള സഹകരണം സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തും

രാഷ്ട്രങ്ങൾ തങ്ങളുടെ ദേശീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതോടൊപ്പം പരസ്പര സഹവർത്തിത്തം പുലർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു

കൃആർോഗൃ സംരക്ഷണം ഉൾപ്പെടെയുളള വിവിധ അടിസ്ഥാന മ്സേവന മേഖലകളിൽ നടന്നുവരുന്ന പരിവർത്തനങ്ങൾ ശ്രദ്ധേയങ്ങളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

മെച്ചപ്പെട്ട ചികിത്സ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്ക്കരിച്ചിട്ടുള്ളതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടുത്തെ വോട്ടർപട്ടികകളിൽ നിന്ന് വ്യാജ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം ആകാശവാണിക്കു നല്കിയ അഭിമുഖത്തിൽ പറഞ്ഞു അടുത്തിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ കരട് വോട്ടർപട്ടിക ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ അമൽനാഥ് സച്ചിൻ പൈലറ്റ് എന്നിവർ നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ട് സുപ്രീംകോടതി നടത്തിയ നിരീക്ഷണത്തിനു പിന്നാലെയാണ് കമ്മീഷ്റ്റെ പ്രതികരണം

ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം മഴ രേഖപ്പെടുത്തി റയാഗഡ ഗൻജാം ഗജപതി എന്നീ ജില്ലകൾ വെള്ളപ്പൊക്കം മൂലം ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലാണ് ഈ ജില്ലകളിലെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് പാചകം ചെയ്ത ഭക്ഷണം എത്തിക്കാൻ മുഖ്യമന്ത്രി നവീൻപട്നായിക് കളക്ടർമാർക്ക് നിർദ്ദേശം നല്കി ഒരാഴ്ചയ്ക്കുള്ളിൽ നാശനഷ്ടങ്ങളുടെ കണക്ക് സമർപ്പിക്കാനും മുഖ്യമന്ത്രി കളക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആന്ധ്രാമുഖ്യമന്ത്രി എൻ

ചന്ദ്രബാബു നായിഡു ഒഡീഷാ മുഖ്യമന്ത്രി നവീൻ പട്നായിക് എന്നിവരുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഇരു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം സാധ്യമായ എല്ലാ സഹായങ്ങളും നല്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നല്കി

ഇതു മനസ്സിലാക്കിയ വിമാനത്താവള അധികൃതർ ദുബായിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനം അടിയന്തിരമായി മുംബെയിൽ ഇറക്കുവാൻ പൈലറ്റിനോട് നിർദ്ദേശിക്കുകയായിരുന്നു

സികാ വൈറസിനൊപ്പം പന്നിപ്പനി

ആംആദ്മി പാർട്ടി ഗവണ്മെന്റിന്റെ ഇൌ പദ്ധതിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പൊതുതാല്പരൃ ഹർജിയിന്മേൽ ജസ്റ്റിസ് രാജേന്ദ്രമേനോൻ ജസ്റ്റിസ് വി

മുട്ടയുടെ ഗുണങ്ങളേയും മനുഷ്യന് പോഷകം നൽകുന്നതിൽ മുട്ടയ്ക്കുള്ള പ്രാധാന്യത്തെയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ലോക മുട്ട ദിനം ആചരിക്കുന്നത്